സൂക്ഷ്മ പരിശോധന നാളെ

ജി പി നിർദേശം നൽകി

ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് പത്രികാസമർപ്പണം ഇന്ന് അവസാനിക്കും പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും തിങ്കളാഴ്ച പത്രിക പിൻവലിക്കാൻ സമയം തീരുന്നതോടെ മത്സര ചിത്രം വ്യക്തമാകും

കോഴിക്കോട് കോർപ്പറേഷനിൽ എൽ ഡി എഫ് ഏഴ് സ്ഥാനാർഥികളെ കൂടി പ്രഖ്യാപിച്ചു രംഭ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ പതിപ്പിക്കുന്ന ലേബലുകളുടെയും ബാലറ്റ് പേപ്പറുകളുടെയും നിറം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചു ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വെള്ളയും ബ്ലോക്കുകളിൽ പിങ്കും ജില്ലാ പഞ്ചായത്തുകളിൽ ആകാശ നീലയുമാണ് നിശ്ചയിച്ചിരിക്കുന്ന നിറങ്ങൾ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും വെള്ള നിറമാണ് ഉപയോഗിക്കുക രംഭ വനിതകൾ ഉൾപ്പെടെ സ്ഥാനാർഥികളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായി ചിത്രീകരിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ പൊലീസ് മേധാവിമാർക്ക് സംസ്ഥാന പൊലീസ് മേധാവി ലോക് നാഥ് ബെഹ്റ നിർദ്ദേശം നൽകി സ്ഥാനാർഥികളുടെ പ്രചരണചിത്രങ്ങളും സ്വകാര്യചിത്രങ്ങളും എഡിറ്റ് ചെയ്തും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചും സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽ പെട്ടതിനെത്തുടർന്നാണ് നിർദ്ദേശം

രംഭ അറബിക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ഇനിയൊരറിയിപ്പുണ്ടാകുന്നത് വരെ മൽസ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും ആഴക്കടലിൽ മീൻ പിടിക്കുന്നവർ തൊട്ടടുത്ത സുരക്ഷിത തീരങ്ങളിൽ എത്തണമെന്നും ദുരന്തനിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

പന്നിയാർ മുതിരപ്പുഴയാർ പെരിയാർ എന്നിവയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ദ്ദേ പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയും വിജിലൻസ് നൽകിയ കസ്റ്റഡി അപേക്ഷയും ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പരിഗണിക്കും

ദ്ദേ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ ഉയർന്ന ഫീ നിരക്ക് നിശ്ചയിച്ച വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി കെ

സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകരെ തന്നെ നിയോഗിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

രുമ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് അനുവദിച്ച ഭീമമായ ഫീ വർദ്ധന പിൻവലിക്കണമെന്ന് എൻ

രുമ അഴിമതിക്കെതിരെ ശബ്ദമുയർത്താൻ അർഹതയുള്ള കേരളത്തിലെ ഏക മുന്നണി എൻഡിഎ മാത്രമാണെന്ന് ബി

പി ദേശീയ നിർവാഹകസമിതിയംഗം പി

ഇരുമുന്നണികളും പരസ്പര സഹകരണസംഘങ്ങളായി പ്രവർത്തിച്ച് അഴിമതി മൂടിവെയ്ക്കുന്ന കീഴ് വഴക്കം ബി ജെ പിയുടെ പ്രക്ഷോഭം ഭയന്നാണ് തിരുത്തിയതെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു

ഇതു സംബന്ധിച്ച പരാതി നാവിക അക്കാദമി അധികൃതർ കണ്ണൂർ ജില്ലാ പൊലീസ് മേധാവിക്ക് കൈമാറി രാജ്യരക്ഷാ വകുപ്പിനുകീഴിലെ സ്ഥാപനമായതിനാൽ നാവിക അക്കാദമിയിൽ നേരിട്ട് അന്വേഷണം നടത്തുന്നതിലെ സാങ്കേതിക ബുദ്ധിമുട്ടൊഴിവാക്കാൻ പൊലീസ് കോടതിയുടെ അനുമതി തേടി രുമ ഈ മാസത്തെ ഭക്ഷ്യക്കിറ്റ് വിതരണം ഇന്ന് ആരംഭിക്കുമെന്ന് സിവിൽ സപ്ലൈസ് ഡയറക്ടർ അറിയിച്ചു

രുര കൊച്ചുവേളി ശ്രീ ഗംഗാനഗർ കൊച്ചുവേളി റൂട്ടിലും എറണാകുളം പട്ന എറണാകുളം റൂട്ടിലും പൂർണമായും റിസർവ് ചെയ്ത പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു കൊച്ചുവേളി ശ്രീ ഗംഗാനഗർ പ്രതിവാര സൂപ്പർഫാസ്റ്റ് പ്രത്യേക ട്രെയിൻ മറ്റന്നാൾ സർവീസ് ആരംഭിക്കും